മന്ത്രി നരേന്ദ്രമോദിയും മൌറീഷ്യസ് പ്രധാനമന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു

ലക്ഷം കടന്നു

മരിച്ചതായി റിപ്പോർട്ട്

ബീഹാറിൽ പ്രളയം രൂക്ഷം

ഈ ബഹുമാനത്തിന്റെ പ്രതീകമാണ് മൌറീഷ്യസിൽ ഇന്ത്യയുടെ സഹായത്തോടെ പുതുതായി നിർമ്മിച്ച സുപ്രീംകോടതി മന്ദിരമെന്നും അദ്ദേഹം പറഞ്ഞു മൌറീഷ്യസ് സുപ്രീംകോടതിയുടെ പുതിയ മന്ദിരം പ്രധാന മന്ത്രി നരേന്ദ്രമോദിയും മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജഗ്നൌത്തും ചേർന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്തു

പാഠ്യേത്ര പ്രവർത്തനങ്ങൾക്കൂ കൂടി പ്രാമുഖ്യം നൽകിക്കൊണ്ട് ആറാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകാനാണ് പുതിയ നയത്തിലെ നിർദ്ദേശം

എസ് ആർ

കസ്തൂരി രംഗന്റെ നേതൃത്തിലുള്ള വിദഗ്ദ്ധ സമിതിയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്തത്

സ്വാതന്ത്രൃദിന ചടങ്ങുകൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്ത മാസവും തുറക്കില്ല എന്നതാണ് മാർഗരേഖയിലെ പ്രധാന തീരുമാനം രാത്രികാല യാത്രാനിരോധനവും നീക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നിന് നിലവിൽ വരുന്ന ഇളവുകൾ കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് ബാധകമല്ല

എം ആർ അറിയിച്ചു

സംസ്ഥാനത്ത് അടുത്ത മാസം നാലുവരെ സമ്പൂർണ ലോക്ഡൌൺ തുടരുമെന്ന് മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേവ് അറിയിച്ചു ലോക്ഡൌൺ തുടർച്ചയായി ഏർപ്പെടുത്തുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഫലം ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

കടുത്ത ്പ്രമേഹ രോഗിയായിരുന്നു

കോവിഡ് പരിശോധനാഫലം പോസിറ്റീവാണ്

മലപ്പുറം സ്വദേശി മുഹമ്മദ് കോഴിക്കോട് സ്വദേശി ആലിക്കോയ എന്നിവരാണ് മരിച്ചത്

സംസ്ക്കാരം പൂനയിൽ തന്നെ നടത്തുമെന്നാണ് സൂചന

പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയശേഷം ദുരുിത്യാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾക്ക് മെച്ചപ്പെട്ടി ആരോഗ്യ പരിരക്ഷ നൽകാനും ആന്റിജൻ ടെസ്റ്റുകൾ ് ന്ടത്താനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

രോഗബാധിതരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ

ചടങ്ങ് ദൂരദർശനിൽ ലൈവായി കാണണമെന്നും ട്രസ്റ്റ് ഭക്തരോട് ആവശ്യപ്പെട്ടു അടുത്തമാസം അഞ്ചിന് നടക്കുന്ന ഭൂമിപൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിക്കും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂട്ടം കൂടുന്നത് അനുവദിക്കാനാകില്ലെന്നും അന്നു വൈകുന്നേരം സ്വഭവനങ്ങളിൽ ദീപം തെളിയിച്ച് എല്ലാ ഭക്തജനങ്ങളും പവിത്രമായ ഉൾക്കൊള്ളണമെന്നും ട്രസ്റ്റ് അഭ്യർത്ഥിച്ചു

കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്സമാകാനും സാധൃതയുണ്ട് കേരള തീരത്ത് നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കർശന മുന്നറിയിപ്പുണ്ട്

എസ് ഐ

ഇവയിൽ അറുപതോളം സാങ്കേതിക സംവിധാനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ നൽകുന്നതിന് നിർമിച്ചതാണ്

സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ അളവ് ഗർഭകാലത്ത് വർദ്ധിക്കുന്നതും ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നതും കോവിഡിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഭ്മുഡിക്കൽ ജേർണലായ എൻഡോ ക്രൈനോളജിയിൽ പ്രസ്തീദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു

കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത് എന്നിവർ സംയുക്തമായി ഹെലികോപ്ടർ സർവ്വീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ ഉഡാൻ പദ്ധതിയിൻ കീഴിൽ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള പവൻഹാൻസ് ലിമിറ്റഡാണ് ഹെലികോപ്ടർ സർവ്വീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്

ആരോഗ്യ പ്രവർത്തകർക്കും പരിശോധനക്ക് വിധേയമാകുന്ന വൃക്തിക്കും പ്രത്യേകം കൃാബിൻ വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്